കേരളത്തിൽ മഴ ശക്തമായി തുടരുന്നു

ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള പ്രസംഗത്തിനു ശേഷം പ്രാദേശിക ഭാഷയിലും ദൂരദർശൻ പ്രസംഗം സംപ്രേഷണം ചെയ്യും

രാജ്യത്തെ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുന്ന ഗവൺമെന്റാണ് തന്റേത്

വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ് വീപ്പിധ കോണുകളിൽ നിന്നുയരുന്ന ദേശീയ പൌരത്വ രജിസ്റ്റർ വിരുദ്ധ നിലപാടുകൾക്ക് പിന്നിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു വളരുന്ന ഗവൺമെന്റ് അഴിമതി തുടച്ചുനീക്കി രാജ്യപൂര്രോഗതിയുടെ പാതയിലാണ് ആൾക്കൂട്ട വിചാരണയെ ഒരിക്കലു്ം അംഗീകരിക്കാത്ത ഗവൺമെന്റ് ഈ വിഷയത്തിൽ കലർത്തുന്നതിനെ രാഷ്ട്രീയം അപലപിക്കുന്നതായും ശ്രീ നരേന്ദ്രമോദി അഭിമുഖത്തിൽ പറഞ്ഞു

വിശദാംശങ്ങളുമായി റിനൽ ജോസഫ്

സി സ്കൌട്ട് ഗൈഡ്സ് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്യും

പരേഡിനുശേഷം തിരുവനന്തപുരം നഗ്ഗരത്തിലെ വിവിധ സ് കൂളുകളിലെ കുട്ടികൾ ദേശഭക്തിഗാന്ങ്ങൾ അവതരിപ്പിക്കും

തൂത്തുക്കുടിയിൽ പ്രവർത്തനം നിർത്തിവച്ച വേദാന്ത ഗ്രൂപ്പിന്റെ പ്ലാന്റിൽ ഭരണ കാര്യാലയത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി വേദാന്തയ്ക്ക് ഹരിത വ്രൈബ്യൂണൽ നൽകിയിരുന്നു ഇതിനെതിരെയാണ് ഗവൺമെന്റ് ഹർജി നൽകിയത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്

വൻ പ്രതിഷേധങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ മേയിൽ പ്ലാന്റ് പൂർണ്ണമായും അടച്ചുപൂട്ടാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്

കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പട്ടാളക്കാരനായ പുഷ്പേന്ദ്രസിംഗ് ഏറ്റുമുട്ടലിൽ വീരമൃത്യുവരിച്ചിരുന്നു മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്

എം കെയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോഗം ഇന്ന് ചെ്ന്നൈയിൽ ചേർന്നു

കരുണാനിധി ആവിഷ്കരിച്ച വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത യോഗം അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ സ്വീകരിച്ച നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങളും വിലയിരുത്തി അന്തരിച്ച നേതാവിനോടുള്ള ആദരസൂചകമായി യോഗം അൽപ്പസമയം മൌനമാചരിച്ചു

രൂപംകൊണ്ടിരിക്കുന്നതിനാൽ ന്യൂനമർദ്ദം ഇന്ത്യയുടെ മധ്യഭാഗങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ ശക്തമായ കാലവർഷം ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അഡീഷണൽ ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മുഖപത്ര ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഒഡീഷയിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴ ശക്തമായി വ്യാഴാഴ്ച വരെ കടലിൽ പോകരുതെന്ന് മീൻപിടിത്തക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

മഴക്കെടുതി മൂലം വീടും കൃഷിയും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് ഗവൺമെന്റ് നിശ്ചയിച്ച നഷ്ടപരിഹാരത്തുക കാലതാമസമില്ലാതെ ല ഭ്യമാക്കാൻ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർദേശം നൽകി

ഇടുക്കിയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്

മഴയ്ക്ക് കുറവുണ്ടായിട്ടും കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴുന്നില്ല പമ്പ അച്ചൻകോവിൽ തുടങ്ങിയ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാടിനു പുറമെ കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ താലൂക്കുകളിലും വെള്ളപ്പൊക്ക ദുരിതമുണ്ട്

രാജ്ഭവനിൽ രാഷില്ല് ൂ് മണിക്ക് നടന്ന ചടങ്ങിൽ ഗവർണ്ണർ പി

മുന്തിസഭയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ വീണ്ടും തിരിച്ചെടുക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു

പ്രതിയുടെ ആവശ്യത്തെക്കാൾ വലുതാണ് ആക്രമിക്കപ്പെട്ടയാളുടെ സ്വകാര്യതയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി തള്ളിയത്

ഇവരിൽ നിന്നും വ്യാജ റേഷൻ കാർഡും തെരഞ്ഞെടുപ്പ് കാർഡും പിടിച്ചെടുത്തു

ടിആർഎസ് സംസ്ഥാന് കമ്മിറ്റി സമ്മേളനത്തിനുശേഷം ഹൈദരാബാദിൽ വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

എന്നാൽ കയറ്റുമതിയെക്കാൾ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യം എന്ന നിലയിൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇന്തൃൻ സമ്പദ് ഘടനയ്ക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു

ഇന്ത്യ ഹോൺഡൂറാസ് എൽ സാൽവഡോർ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എത്തിയതാണിവർ

പിമാരുള്ള തമിഴ് നാഷണൽ അലയൻസ് പാർട്ടി അംഗത്തെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് ഏകപക്ഷീയ നിലപാടാണെന്ന് അദ്ദേഹം വിമർശിച്ചു ആകാശവാണി കൊളംബോ പ്രതിനിധിയുമായി നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദിനേഷ് ഗുണവർധന